ഇന്ത്യ യിൽ നിന്നുള്ള മെഡിക്കൽ ഫാർമാ പ്രൊഫഷണലുകൾക്കും ശാസ്ത്രജ്ഞർക്കും വലിയതോതിലുള്ള അംഗീകാരം ഇന്ന് ലഭിക്കുന്ന തായും അദ്ദേഹം പറഞ്ഞു എംജിആറിന്റെ ഭരണനേട്ടങ്ങളെ പ്രകീർത്തിച്ച പ്രധാനമന്ത്രി അദ്ദേഹം പാവപ്പെട്ടവരോട് വളരെയേറെ അനുതാപം പുലർത്തിയിരുന്നതായും ചൂണ്ടിക്കാട്ടി

തമിഴ്നാട് ഗവർണർ ബൻവരിലാൽ പുരോഹിത് ഉൾപ്പെടെയുള്ള പ്രമുഖർ ബിരു ദദാന ചടങ്ങിൽ പങ്കെടുത്തു

ഗെയിംസിന്റെ മനോഹരമായ സംഘാടനത്തിന് ജമ്മുകശ്മീർ ഭരണകൂടത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു

ഗെയിംസിൽ പങ്കെടുക്കുന്ന ്സംസ്ഥാനങ്ങളുടെ എണ്ണം ഇരട്ടിയായതിൽ സന്തോഷം പ്രകടിപ്പിച്ചു പ്പിധാനമന്ത്രി രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായ മെച്ചപ്പെടുത്തു്ന്ന്തിൽ സ്പോട്സിന് പ്രധാന പങ്കുണ്ടെന്നും അറിയിച്ചു

ജമ്മുകശ്മീർ സ്പോർട്സ് കൌൺസിലിന്റേയും വിന്റർ ഗെയിംസ് അസോസിയേഷന്റെയും സഹകരണത്തോടെ യുവജന കാര്യ കായിക മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിലായി ഈ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കും

പ്രധാനമന്ത്രി നരേന്ദ്ര മോഭ്യിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യത്തെ സൈനിക്കരുടെ സുരക്ഷ പരമപ്രധാനമായാണ് കരുതുന്നതെന്ന് ബലാ്കോട്ട് വ്യോമാക്രമണത്തിന്റെ രണ്ടാം വാർഷികത്തിൽ അദ്ദേഹം പറഞ്ഞു പുൽവാമ ഭീകരാക്രമണത്തോട് ശക്തമായി പ്രതികരിച്ചതിലൂടെ രാജൃത്തിന്റെ ഭീകരതയ്ക്കെതിരായ നയങ്ങളാണ് ഇന്ത്യൻ വ്യോമസേന ആവർത്തിച്ച് വ്യക്തമാക്കിയതെന്നും ശ്രീ

കളിപ്പാട്ടങ്ങൾ വഹിക്കുന്ന സുപ്രധാന പങ്കിനെ ടോയ് ഫെയർ പ്രതി നിധീകരിക്കുന്നു

വിശദാംശങ്ങളിലേക്ക്

ലോകത്തെ അറുപതിലേറെ രാജൃങ്ങൾക്ക് ഇന്ത്യ വാക്സിൻ നൽകുന്നതായി ഡബ്ല്യൂ എച്ച്

ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും

മികച്ച ആശയവിനിമയത്തിനായി ഒരു ഹോട്ട്ലൈൻ സ്ഥാപിക്കാനും സമയബന്ധിതമായി അഭിപ്രായങ്ങൾ കൈമാറാനും ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ടെന്ന് വിദേശകാരൃ മന്ത്രി ഡോ

പരസ്പരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ സമാധാനം കൈവരിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹം പറഞ്ഞു പരസ്പരം പ്രശ്നങ്ങൾ പരിഹരിച്ച് സമാധാനം കൈവരിക്കുന്ന രീതി രാജ്യങ്ങൾക്കും മാതൃകയാണെന്നും ഐക്യരാഷ്ട്ര മറ്റ് പൊതുസഭയുടെ മൂലൃങ്ങളാണ് ഇത് വൃക്തമാക്കുന്നതെന്നം അദ്ദേഹം പറഞ്ഞു

കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ സാന്നിധ്യത്തിലായിരുന്നു ധാരണാപത്രം ഒപ്പുവച്ചത്

കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മമ്പറം പാലത്തിന്റെ ഉദ്ഘാടനം ഇന്ന് ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം